ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യും

റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോട്ടി പങ്കെടുക്കും

പാലിക്കുന്നത് തുടരാൻ നിർദേശിച്ച് കേന്ദ്ര ആഭൃന്തര മന്ത്രാലയം

അഴിമതിയും അക്രമവും തുടച്ച് നീക്കി ബംഗാളിൽ വികസനം കൊണ്ടു വരുമെന്നും അദ്ദേഹം പറഞ്ഞു പശ്ചിമബംഗാളിലെ ഖരഗ്പൂരിൽ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് സമ്മേനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

പി സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമത ബാനർജി കിഴക്കൻ മേദിനിപൂരിലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ സർക്കാർ സ്ഥാപനങ്ങളെ സ്വകാര്യവത്കരിക്കാനാണ് ബി ജെ

സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നിയോഗിച്ച ഉദ്യോഗസ്ഥരായിരിക്കും ഇനി ഭരണ കാര്യങ്ങൾ നിർവഹിക്കുക

നാമനിർദ്ദേശപത്രിക പിൻവലിക്കാനുള്ള തീയതി ശ്രീനുളെ അവസാനിക്കുമ്പോൾ ഇവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചീത്രം കൂടുതൽ വ്യക്തമാകും

കേരളത്തിൽ എൽ

ജെ പി പ്രകടനപത്രിക ഉടൻ പുറത്തിറക്കും

നാളെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാനതീയതി

അധികാരം ലഭിച്ചാൽ പൌരത ഭേദഗ്ര്തിനീയമം നടപ്പിലാക്കില്ല എന്ന് കോൺഗ്രസ് പ്രകടന പത്രിക്കിൽ ഉറപ്പു നൽകുന്നു

കർഷകരുടെ കാർഷിക കടം എഴുതിതള്ളും

അതേസമയം പലസംസ്ഥാനങ്ങളിലും കോവിഡ് വ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകി

എന്നാൽ വാക്സിിൻ വിതരണം നടക്കുന്ന വേളയിലും എല്ലാ സംസ്ഥാനങ്ങളൂം ക്രേന്ദ്രഭരണ പ്രദേശങ്ങളും ശക്തമായിതന്നെ കോവിഡ് മ്യാന്ദ്ണ്ഡങ്ങൾ പാലിക്കുന്നത് തുടരുണമെന്ന് കേന്ദ്ര ആഭ്യന്ത്ര് മിന്താലയം അറിയിച്ചു ഇത് സംബന്ധിച്ച് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണത്തില്പൂൻമാർക്കും ആഭ്യന്തര സെക്രട്ടറി അജയ് ബെല്ല കത്തയച്ചു

കോഴിക്കോട് എറണാകുളം ജില്ലകളിലാണ് കൂടുതൽ കേസുകൾ

ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ജെ ഓസ്റ്റിനും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങ്ങും സംയുക്ത പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച് ഇന്ത്യ മുന്നോട്ടു വച്ച നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി സ്വാഗതം ചെയ്തതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താനും പ്രതിരോധ മേഖലയിലെ പിന്തുണ വിപുലീകരിക്കാനും സമഗ്രമായ നയതന്ത്ര പങ്കാളിത്തത്തിന്റെ മുഴുവൻ സാധൃതകളും പ്രയോജനപ്പെടുത്തി ഒരുമിച്ച് പ്രവർത്തിക്കാനും കൂടിക്കാഴ്ചയിൽ ധാരണയായി

ഇന്ത്യ നിലവിൽ അഭ്യിമുഖ്ീകരിക്കുന്ന സുരക്ഷാ പദ്ധതികളും ഇന്ത്യയുടെ ദീർഘ്ക്ട്ടല് സുരക്ഷാ പദ്ധതികളും കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടേയും അമേരിക്കയുടേയും പ്രതിരോധ് മേഖലയിലുള്ള പരസ്പര സഹകരണവും പുരോഗ്തിയും ചർച്ചയിൽ വിലയിരുത്തി ലോകത്തെ തന്നെ വലിയ് ജനാധിപത്യ രാജ്യങ്ങളായ ഇന്ത്യ യുടേയും അമേരിക്ക്യുടേയും സഹകണം മനുഷ്യവകാശവും മൂലൃവും സംരക്ഷിക്കപ്പെടാൻ ഇരുരാജൃങ്ങളേയും സഹായിക്കു മെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു

പാകിസ്ഥാൻ ആരോഗ്യമന്ത്രി ഫൈസൽ സുൽത്താനാണ് ഇമ്രാൻഖാന് കോവിഡ് ബാധിച്ചതായി അറിയിച്ചത്

പൊതുജനങ്ങൾക്ക് ന്യായമായ വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനാണ് വില നിയന്ത്രണം കൊണ്ടു വന്നത്

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏകദിന മത്സരങ്ങൾ ചൊവ്വാഴ്ച തുടങ്ങും